അർബുദരോഗബാധയെ തുടർന്ന് പുലർച്ചു ബംഗളുരുവി ലായിരുന്നു അന്തൃം കഴിവുറ്റ ഭരണാധിക്കാരിയായിരുന്നു അന ന്തകുമാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമനവിവാദത്തെ തുടർന്ന് മുന്തി കെ ടി ജലീലിന്റെ ബന്ധു ന്യൂനപക്ഷവികസന ധനകാര്യകോർപ്പറേഷൻ ജന റൽ മാനേജർസ്ഥാനം രാജിവെച്ചു

ഛത്തീസ്ഗഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അൽപസമയത്തി നകം ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി അനന്ത്കുമാർ അന്തരിച്ചു

കേന്ദ്രമന്ത്രിസഭയിൽ രാസവളം വകുപ്പിന്റെ ചുമത ല കൂടി അദ്ദേഹം വഹിച്ചിരുന്നു

എബിവിപിയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേ ശിച്ചത് പിന്നീട് ബിജെപിയിൽ സജീവമായി ബിജെപി കർണാ ടക സംസ്ഥാന പ്രസിഡന്റ് ദേശീയ ജനറൽ സെക്രട്ടറി എബി വിപി ദേശീയ പ്രസിഡന്റ് ഭാരതീയ ജനതയുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് വാജ്പേയ് മന്ത്രിസഭയിൽ വ്യോമയാന മന്ത്രിയായിരുന്നു

അനന്ത്കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമൃന്ത്രി നരേന്ദ്രമോദി അനു ശോചിച്ചു കഴിവുറ്റ ഭരണാധിക്യ്രി യായിരുന്നു അനന്ത്കുമാറെന്ന് ട്വീറ്റർ സന്ദേശത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ ബിജെപിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും കർണാടകയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അനന്ത്കുമാറിന്റെ നീർ്യാണ്ത്തിൽ കേന്ദ്ര മന്ത്രിമാരായ നിർമല സീതാരാമൻ സദാനന്ദ ഗൌഡ് തുടങ്ങിയവരും അനുശോചിച്ചു മന്ത്രി ഡോ കെട്ടി ജലീലിന്റെ ബന്ധു കെ ടി അദീബ് ന്യൂന പക്ഷ വികസന് ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ചു ആത്മാഭിമാനം ചോദ്യംചെയ്യപ്പെട്ട സാഹച ര്യത്തിലാണ് തീരുമാനമെന്ന് കോർപ്പറേഷൻ എം ഡി ക്ക് ഇ മെയിൽ വഴി ്അയച്ച രാജിക്കത്തിൽ അദ്ദേഹം അറിയിച്ചു കത്ത് ഇന്ന് രാവിലെ ചേരുന്ന ഡയറക്ടർബോർഡ് യോഗം ചർച്ച ചെയ്യും മാതൃസ്ഥാപനമായ സൌത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നാണ് അദീബിന്റെ ആവശ്യം അദീബ് രാജിവെച്ചതുകൊണ്ട് മന്ത്രി ജലീൽ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ലെന്ന് യൂത്ത്ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രതികരിച്ചു മന്ത്രി രാജിവെക്കും വരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു ഇന്ന് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ഫിറോസ് പറഞ്ഞു മന്ത്രി ഡോ കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എടപ്പാളിലും തിരുന്നാവായയിലും യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുകയും ചീമുട്ടയെറിയുകയും ചെയ്തു എടപ്പാളിൽ ഉണ്ടായ സംഘർഷത്തിൽ എട്ട് പേർക്ക് പരുക്കേറ്റു നാല് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു അതേസമയം മുസ്തിം ലീഗ് പ്രവർത്തകരെ നിയന്ത്രിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് സിപിഐഎം മുന്നറിയിപ്പ് നൽകി സ്വകാര്യ പരിപടികളിൽ പോലും പങ്കെട്ടുക്കാൻ കഴിയാതെ മന്ത്രിയെ ബുദ്ധിമുട്ടിക്കുന്നത് ജനാധിപത്യ പ്രിരുദ്ധമാണെന്ന് സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറിട്ഇ എൻ മോഹൻദാസ് പറഞ്ഞു സംസ്ഥാന ഗവ

വൈകിട്ട് തിരുവനന്തപുരത്ത് സമാപന സമ്മേള്നം മന്ത്രി കടകംപളളി സുരേ ന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങളൂടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച ചിത്രരചന ഉപന്യാസര്യചന പ്രശ്നോത്തരി മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും മത്സരങ്ങളിൽ പങ്കെ ടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും

കോഴിക്കോട്ട് മന്ത്രി ടി പി രാമകൃഷ്ണനും പാലക്കാട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ ചവുട്ടി മെതിക്കാനാണ് ശബരിമലയുടെ പേരിൽ കലാപം നടത്തുന്നവർ ശ്രമിക്കുന്നതെന്നും സത്യം തിരിച്ചറിയുന്ന വരാരും ഇതിനെ പിന്തുണയ്ക്കില്ലെന്നും മന്ത്രി കെ രാജു പറഞ്ഞു

നാലു പതിറ്റാണ്ടായി ശബരിമലയെ തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് യുവതീ പ്രവേശന വിധിക്കു ശേഷവും നടക്കുന്നതെന്ന് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി

ശ്രീധരൻ പിള്ള പറഞ്ഞു പാലക്കാട് കുളപ്പുള്ളിയിൽ ശബരിമല സംരക്ഷണ രഥയാത്രക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ദൌർഭാഗൃകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ദൃശ ശബരിമല യൂവതി പ്രവേശന പ്രിഷയം കൂടുതൽ സങ്കീർണമാക്കാനാണ് സി

ഐഎമ്മും ബി

പി യും ശ്രമിക്കുന്നതെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി സാമുദായിക്യ്യുപ്പീകരണവും കലാപവും സൃഷ്ടിച്ചു രാഷ്ട്രീയ ലാഭം നേടുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ നയിക്കുന്ന കെ

സി മേഖലാ ജാഥ പാലക്കാട് കോങ്ങാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാഥക്ക് ഇന്ന് പ്രാലക്കാട് ആലത്തൂർ കുളപ്പുള്ളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയി ക്കുന്ന വിശ്ചാസ സംരക്ഷണയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും രാവിലെ ജില്ലാ അതിർത്തിയായ തൊട്ടിൽപാലത്ത് ജില്ലാ നേതാക്കൾ ജാഥയെ വരവേൽക്കും പേരാമ്പ്രയിലാണ് ആദ്യ സ്വീകരണം ഉച്ചകഴിഞ്ഞ് കൊയിലാണ്ടിയിൽ സ്വീകരണം നൽകും വൈകിട്ട് മുതലകുളത്ത് സ്വീകരണ പൊതുസമ്മേളനം നടക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷ ണയാത്ര ഇന്ന് കോട്ടയത്ത് എത്തും

ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികാഘോഷങ്ങ ളുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് ജില്ലാകേ ന്ദ്രങ്ങളിൽ നവോത്ഥാന സംഗമങ്ങൾ സംഘടിപ്പിക്കും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണ മെന്നാവശ്യപ്പെട്ട് ശബരിമല കർമസമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ നാമജപ ഘോഷയാത്ര നടത്തി തുടർന്ന് പാലക്കാട് കോട്ടമൈതാനത്തു നടന്ന ഹിന്ദു മഹാസമ്മേളനം സംവിധായകൻ അലി അക്ബ്രർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസ്പഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച് ഛത്തീസ്ഗഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അൽപസമയത്തിനകം ആരംഭിക്കും

വോട്ടെടുപ്പിന്റെ ത്ലേദിവസമായ ഇന്നലെ മാവോവാദികൾ നടത്തിയ സ്ഫോട്നത്തിൽ ഒരു ബിഎസ്എഫ് സബ് ഇൻസ്പ്പെക്ടർ മരിച്ചു ബീജാപ്പൂർ മേഖലയിൽ ഒരു മാവോ വാദിയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ രണ്ടാം തോൽവി കൊച്ചിയിൽ നടന്ന മത്സര ത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഗോവ എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്

ഏഴു പോയിന്റ് ലഭിച്ച ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്താണ്

ചെന്നൈയിൽ മൂന്നാം മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ വിൻഡീസിനെ തോൽപിച്ചത്

കേരളം നാളെ സായ് ടീമുമായി ഏറ്റുമുട്ടും കോഴിക്കോട്ട് നടന്ന ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഷില്ലോങ്ങ് ലജോങ്ങ് എഫ്സിയെ പരാജയപ്പെടുത്തു ് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ്സിയുടെ ആദ്യവിജയമാണിത് കണ്ണൂർ സർവകലാശാല കായികമേളയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മങ്ങാട്ട്പറമ്പ് സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യു ക്കേഷൻ ചാമ്പ്യൻമാരായി

പുരുഷ വിഭാ ഗത്തിൽ ക്ണ്ണൂർ എസ്എൻ കോളജിനും വനിതാവിഭാഗത്തിൽ തലശ്ശേരി ഗ്വ ബ്രണ്ണൻ കോളജിനുമാണ് രണ്ടാം സ്ഥാനം ഡിവൈഎഫ്ഐ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് പതാക ഉയർന്നു സംഘാടകസമിതി ചെയർമാൻ പി മോഹനൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം ഇന്ന് രാവിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് ഉദ്ഘാ ടനം ചെയ്യും

കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ് ഘാടന ചടങ്ങ് ഉത്സവമാക്കി മാറ്റാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു

ഉദ്ഘാടന ചടങ്ങിൽ ഒരു ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്

ഉദ്ഘാടന ദിവസം കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഭരണഘനഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ബിജെപി ഗവൺമെന്റിന്റെ പ്രവർത്തന്റ് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നതാ ണെന്ന് ആർഎസ്പി കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ എംപി പറഞ്ഞു ആർഎസ്പി പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാഴ്ച വൈകല്യമുളള ല്ലോട്ടറി തൊഴിലാളികൾക്കെതിരെ ജില്ലയിൽ പലയിടങ്ങളിലായി നടക്കുന്ന അതിക്രമങ്ങളിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് പാലക്കാട് ജില്ലാകമ്മറ്റി പ്രതി ഷേധിച്ചു ഇത്തരം സാമൂഹ്യവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി വേണ്മെന്നും കാഴ്ചയില്ലാത്തവരുടെ സുരക്ഷ ഉറപ്പു വരുത്തണ്മെന്നും കെഎഫ്ബി ജില്ലാഭാരവാഹികൾ പാലക്കാട്ട് ആവശ്യപ്പെട്ടു ചികിത്സയിലായിരുന്ന മാതാവിനെ കാണാൻ ജാമൃത്തിലെത്തിയ പിഡിപി ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി കോയമ്പത്തൂരിലേക്ക് മടങ്ങി ഇന്നലെ വൈകിട്ടാണ് റോഡ് മാർഗ്ഗം മദനി അൻവാർശേരിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയത്

ബി ഐ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിനെതിരെ അലോക് വർമ്മ സമർപ്പിച്ചു ഹർജി സുപ്രീംകോടതി ഇന്ന് പരി ഗണിക്കും അലോക് വർമ്മക്കെതിരെ സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന നൽകിയ അഴിമതിക്കേസിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ റിപ്പോർട്ടും കോടതിയുടെ പരി ഗണനയ്ക്ക് വരും